ലോക സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഉൌർജ്ജിതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിലും പശ്ചിമബംഗാളിലും ഇന്ന് റാലികളെ അഭിസംബോധന ചെയ്യും

തെരഞ്ഞെടുപ്പ് ക്ക്മീഷൻ ചെന്നൈയിൽ ഇന്ന് രാഷ്ട്രീയ കക്ഷികളുമായി ത്തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യും

എഫ് ക്യാമ്പ് ആക്രമണത്തിലെ മുഖ്യപ്രതി ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരൻ നിസാർ താന്ത്രെയെ യു എ

ഐ പി എല്ലിൽ ബാംഗളൂർ റോയൽ ചലഞ്ചേഴ്സിനെതിരിരെ രാജസ്ഥാൻ റോയൽസിന് ഏഴ് വിക്കറ്റ് ജയം

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പശ്ചിമബംഗാളിലും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി അസമിലും ഇന്ന് തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും വിശദാംശങ്ങളുമായി പ്രിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് അരുണാചൽപ്രദേശിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധനചെയ്യും അരുണാചലിൽ ഒരാഴ്ചക്കിടെ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ സന്ദർശനമാണിത് കഴിഞ്ഞ ശനിയാഴ്ച പടിഞ്ഞാറൻ സിയാങ് ജില്ലയിലെ ആലോയിൽ നിന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാന ങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരത്തിന് തുട്ടക്കമായത് അരുണാചൽ വെസ്റ്റിൽ മുതിർന്ന ബി ജെ പി നേതാവൂട്ട് ക്കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജുവും മുതിർന്ന കോൺഗ്രസ്റ്റ് നേതാവ് നബാം ടുക്കിയും തമ്മിലാണ് പ്രധാന മത്സരം പ്രക്യാനമന്ത്രി ഇന്ന് പശ്ചിമബംഗാളിൽ ബി ജെ

കുഛ് ബിഹാർ ജില്ലയിൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും ത്രിണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാബാനർജി അഭി സംബോധന ചെയ്യും

വയനാട്ടിൽ നിന്ന് ജനവിധി തേടുന്ന അദ്ദേഹം നാളെ പത്രിക സമർപ്പിക്കും

മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ ഇലക്ഷൻ കമ്മീഷണർമാരായ അശോക് ലവാസ സുശീൽ ചന്ദ്ര എന്നിവർ സംസ്ഥാനത്തെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ജില്ലാ പൊലീസ് സൂപ്രണ്ടുമാർ എന്നിവരുമായി ച്ചർച്ച നടത്തും സംസ്ഥാന ചീഫ് സെക്രട്ടറി പൊലീസ് മേധാവിക്ഷ്മീണിവരുമായി കമ്മീഷൻ നാളെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഷ്ട്രീലിയിരുത്തും പൊതുസുരക്ഷ യാണ് പ്രധാന ചർച്ചാ വിഷയം

കേരളത്തിൽ തൃശൂർ മണ്ഡല ത്തിൽ രാജ്യസഭാ എം

ന്യൂഡൽഹിയിൽ ബിജെപി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്

ഇതോടൊപ്പം ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിനുളള സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസ് പുറത്തിറക്കി

ഗീതത്തിന്റെ ഡിവിഡി ഇന്ന് തിരുവനന്തപുരത്ത് ഗവർണർ പി സദാശിവം പ്രകാശനം ചെയ്യും

കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഐക്കൊണുകളായി നിശ്ചയിച്ചിട്ടുള്ള ക്രൂക

ചിത്രയെയും ഇ

ഇന്നലെ ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിച്ചത് വടകര മണ്ഡലത്തിലാണ്

വെള്ളിയാഴ്ച പത്രികകളുടെ സൂക്ഷ്മപരിശോധന നടക്കും പത്രിക പിൻവലിക്കാൻ തിങ്കളാഴ്ച വരെ സമയമുണ്ട്

എ ഇ ഇന്ത്യയ്ക്ക് കൈമാറി

എഫ് ക്യാമ്പാ ക്രമണത്തിലെ മുഖ്യ സൂത്രധാരനാണ് നിസാർ അഹമ്മദ് ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചാണ് യു

ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നിസാർ യു

നിസാറിനെ ദേശീയ അന്വേഷണ ഏജൻസി കസ്റ്റഡിയിൽ വാങ്ങി

പാകിസ്ഥാൻ ഹൈക്കമ്മീഷനും മോചനം വേഗത്തിൽ സാധ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്

ഇന്ത്യയിലെയും ദക്ഷിണാഫ്രിക്കയിലെയും ്കുലാകാരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നതി നിടെയാണ് രാഷ്ട്രപതി കേപ്ടൌണിൽ എത്തിയത് ക്രൊയേഷ്യ ബൊളീവിയ ചിലി എന്നീ രാജ്യങ്ങളിലാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദർശനം നടത്തിയത് പര്യടനം പൂർത്തിയാക്കി നാളെ രാവിലെ രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തും

ജയ്പൂരിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരു റോയൽ ചലഞ്ചേഴ്സിനെ ഏഴ് വിക്കറ്റിന് തോൽപിച്ചാണ് രാജസ്ഥാൻ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കിയത് ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത രാജസ്ഥാൻ ബംഗളുരുവിനെ ബാറ്റ് ചെയ്യാൻ വിട്ടു

ഈ ജയത്തോടെ രാജസ്ഥാൻ രണ്ട് പോയിന്റുമായി ആറാം സ്ഥാനത്തെത്തി ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

സി ഒളിമ്പിക് കാളിഫയർ രണ്ടാം റൌണ്ട് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇൻഡോനേഷ്യയെ നേരിടും

ഇന്ത്യൻ വനിതകൾ മികച്ച പ്രകടനമാണ് നടത്തുന്ന തെന്ന് കോച്ച് പറഞ്ഞു

റൊമാനിയ ഉസ്ബെകിസ്ഥാൻ ഇറാൻ ഹോങ്കോങ് എന്നീ ടീമുകളെ നേരിട്ടാണ് ഇന്ത്യി ത്ത്യാം റൌണ്ടിലേക്ക് കടക്കു ന്നത്

വിശദാംശങ്ങളുമായി പ്രിയ യുദ്ധങ്ങളും കാലാവസ്ഥാ വൃതിയാനവുമാണ് പട്ടിണിക്ക് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്

എൻ സംഘടനയായ ഭക്ഷ്യ കാർഷിക സംഘടന എഫ്

മൂന്ന് വർഷം മുമ്പാണ് യുദ്ധക്കെടുതികളെ തുടർന്ന് എഫ്

ഒ എമർജൻസി വിഭാഗം ഡയറക്ടർ ഡൊമിനിക് ബർഗോൺ പറഞ്ഞു വരൾച്ച പ്രളയം സാമ്പത്തിക അരക്ഷിതാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ

രാജ്യത്തെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി മൂലം വെനസ്വേലയിൽ ഈ വർഷം ഭക്ഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് എഫ്

അന്തൂർദ്ദേശീയ വ്യാപാര ഡയറക്ടർ ഒലെക്സി റോഷ്ക്കോവാണ് ഉക്രൈയ്നെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്തത്

സിബിഐ രജിസ്റ്റർ എഫ് ഐ

തന്റെ കാലാവധി അവസാനിച്ചതായി പ്രഖ്യാപിക്കാൻ ഭരണഘടനാ കൌൺസിലിനോട് പ്രസിഡന്റ് ളൌർദ്ദ്യോഗികമായി ആവശ്യപ്പെട്ടു പ്രസിഡന്റിനെ അടിയന്തിരമായി പ്രസിക്കം ചെയ്യണമെന്ന് സൈനിക മേധാവി ആവശ്യപ്പെട്ടതിന്റ് ് തൊട്ടുപിന്നാലെയാണ് പ്രസിഡന്റ സ്ഥാനത്യാഗത്തിന് സന്നദ്ധ്യരൃഢഅറിയിച്ചത്

കഴിഞ്ഞ മൂന്ന് ദിവസമായി സിറിയയിൽ കനത്ത മഴയാണ്

ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ തുടരുന്നു

വെനസ്വേലയിലെ മോശമായ സാഹചര്യം മധ്യപൂർവ്വ ദേശത്തെ ഇറാന്റെ ഇടപെടലിൽ നിയന്ത്രണം വരുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ അവതരിപ്പിക്കും